ഡി

ശനിയാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കും കഴക്കൂട്ടമടക്കം ആറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ബിട്ട്രെ

പ്രഖ്യാപിച്ചു

സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും പ്രചാരണ പരിപാടികളിൽ സജീവമാണ് എൽഡിഎഫ് യുഡിഎഫ് എൻഡിഎ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കൺവൻഷനുകൾ സംസ്ഥാനത്തൊട്ടാകെ പുരോഗമിക്കുക യാണ്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

എൽഡിഎഫ് എൽഡിഎഫിന്റെ തെരഞ്ഞെട്ടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി പിജയന്റെ സംസ്ഥാന പര്യടനം ഇന്ന് വയനാട്ടിൽ ആരുഭിച്ചു കൽപ്പറ്റയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും നടന്ന പൊതുയോഗങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്തു

രാജ്യത്ത് മതനിരപേക്ഷതയും ഭരണഘടനയും തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി നാളെ മലപ്പുറം ജില്ല സന്ദർശിച്ച് നാല് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിക്കും സിപിഐ കേരള കോൺഗ്രസ് എം എൻസിപി എൽജെഡി തുടങ്ങിയ എൽഡിഎഫ് ഘടകകക്ഷികളും ചൂടു പിടിച്ച പ്രചാരണമാണ് വിവിധ മണ്ഡലങ്ങളിലായി നടത്തുന്നത്

ഡി എഫിന്റെ പ്രചാരണ ഗാനവും ഇന്ന് പുറത്തു വന്നു

വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ആറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു രമേശ് ചെന്നിത്തല ഉമ്മൻ ചാണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ സംസ്ഥാന നേതാക്കൾക്കു പുറമേ രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി തുടങ്ങിയ ദേശീയ നേതാക്കളും ഇക്കുറി യുഡിഎഫിനായി പ്രചാരണത്തിന്റെത്തും മുസ്ലിം ലീഗും കേരളാ കോൺഗ്രസ് ജോസഫ്ട് പ്പിഭാഗവും ആർഎസ്പിയും ഉൾപ്പെട്ട യുഡിഎഫ് കൃാമ്പ് പ്പൂർണ്ണമായും പ്രചാരണ രംഗത്ത് സജീവമാണ്

ഡി എഫ്ട് ശനിയാഴ്ച പ്രകടന പത്രിക പുറത്തിറക്കും

കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനും കൊല്ലത്ത് എം

മുകുന്ദൻ പള്ളിയറ മാനന്തവാടിയിലും ബി റ്റി സുധീർ കരുനാഗപ്പള്ളിയിലും ബിജെപിയ്ക്ക് വേണ്ടി മത്സരിക്കും

രാജഗോപാൽ അടക്കമുള്ള സംസ്ഥാന ബിജെപി നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആഭ്യന്തര മന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പ്രമുഖ പ്രചരണത്തിനായി എത്തും നാമനിർദ്ദേശം നാമനിർദേശ പത്രികാ സമർപ്പണം പൂർത്തിയാവാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കേ നിരവധി പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തും വി ശശി എംഎൽഎ ചിറയിൻകീഴിലും ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ നേമത്തും ഇന്ന് പത്രിക സമർപ്പിച്ചു

നിയമസഭാ തെരഞ്ഞെടുപ്പിന് പുറമേ മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനും മലപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു

മ്യന്തി കടകംപള്ളി സുരേന്ദ്രനെതിരെ കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ്എസ് ലാലും ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തുവന്നു

സി തോമസിന്റെ നേതൃതിത്തിലുള്ള കേരളാ കോൺഗ്രസ് എൻ

നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ ് പ്രതിഷേധിച്ചാണ് നടപടി കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ലയിച്ച് ഒരു പാർട്ടിയായി പ്രവർത്തിക്കാനാണ് തീരുമാനം

സി തോമസ് വിഭാഗം കൂടി ലയിക്കുന്നതോടെ പി ജെ ജോസഫിന്റെ നേതൃത്വത്തിൽ കേരളാ കോൺഗ്രസ് കൂടുതൽ കരുത്താർജ്ജിച്ച് മുന്നേറുമെന്ന് ജോസഫ് വിഭാഗം നേതാവ് മോൻസ് ജോസഫ് എം

ഏറെ നാളായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരിക ആയിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ മുന്നണിധാരണയുമായി മുന്നോട്ട്പോകാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം തീരുമാനം മാറ്റിയില്ലെങ്കിൽ നേതൃത്വം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട്പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി

ചാക്കോയോട് പറഞ്ഞിട്ടില്ലെന്ന് ക്ക്പി സി സി

താൻ കോൺഗ്രസ് വിട്ടു പോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞത് അടിസ്ഥാന രഹിതമാണെന്നും ശ്രീ കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

ജെ

എം ധാരണയാണെന്ന ബാലശങ്കറിന്റെ പ്രസ്താവന തള്ളി ബി ജെ പി ദേശീയ വക്താവ് ഗോപാൽകൃഷ്ണ അഗർവാൾ തൃശ്ശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പല മണ്ഡലത്തിലും ഒരാൾക്കു തന്നെ ഒന്നിലധികം വോട്ടുള്ളതായി കണ്ടെത്തിയെന്നു ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയെ സമീപിച്ചു ഒരേ വൃക്തികളെ ഒന്നിലധികം തവണ പട്ടികയിൽ ചേർത്തതായും നിരവധി ഐഡി കാർഡുകൾ നൽകിയതായും പ്രതിപക്ഷനേതാവ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സംഘടിത ശ്രമം നടക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി

കെ രാഗേഷ് അബ്ദുൾ വഹാബ് വയലാർ രവി എന്നിവരുടെ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ്

മൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും ഏപ്രിൽ അഞ്ച് വരെ പത്രിക പിൻവലിക്കാം

അന്ന് തന്നെ വൈകീട്ട് അഞ്ച് മണിക്ക് വോട്ടെണ്ണും

പ്രധാനമന്ത്രി കോവിഡ് യോഗം കോവിഡ് വൈറസ് വ്യാപനം വീണ്ടും രൂക്ഷമാകുന്നത് തടയാൻ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ സംസ്ഥാനങ്ങളിലേയും മുഖ്യമന്ത്രിമാരുമായി നടത്തിയ വിർചൽ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

റാപ്പിഡ് ആന്റിജൻ പരിശോധനകൾക്ക് പ്രാധാന്യൂ നൽകുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആർപ്പിട്ടിട്ട് പി സി ആർ പരിശോധനകൾ വർദ്ധിപ്പിക്കണമെന്നും അ്ദ്ദേഹം പറഞ്ഞു

ജന്തുബലി നിരോധന നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പൊലീസ് അറിയിച്ചു

നാളെയാണ് ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ഭരണി ആഘോഷിക്കുന്നത്

രണ്ടാം ശനിയാഴ്ചക്കും ഞായറാഴ്ചയ്ക്കും ശേഷമുള്ള രണ്ടുദിവസങ്ങളിൽ ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്നാണ് ബാങ്കുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരുന്നത് ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിൽ പതിഷേധിച്ചായിരുന്നു പണിമുടക്ക്

ഏഷ്ടൂസിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം

വിമൺ ക്രിക്കറ്റ് ഇന്ത്യയ്ക്കെതിരായ അഞ്ചാമത്തെതും അവസാനത്തേതുമായ വനിത ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് അഞ്ച് വിക്കറ്റ് വിജയം